കുദ്റാ വ്യാപാരി ദൂഖാൻദാർ സരോസ്കർ പെൻഷൻ യോജനയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കമിടും വിശദാംശങ്ങളുമായി സൂലൈമാൻ രാജ്യത്തെ ചെറുകിട ഇടത്തരം കർഷകർക്ക് പ്രതിമാസം മൂവായിരം രൂപയാണ് പ്രധാൻമന്ത്രി കിസാൻ മൻധൻ പദ്ധതിയിലൂടെ പെൻഷനായി നൽകുക ജാർഖണ്ഡിലെ റാഞ്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്യും

ഉദ്ഘാടനവും പുതിയ സെക്രിട്ടിയേറ്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും

നരേന്ദ്രമ്ോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ഒ വികസിപ്പിച്ച മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു ഭാരം കുറഞ്ഞ ഈ മിസൈൽ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ്

മിസൈൽ പരീക്ഷണം വിജയകരമായതിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങ് ഡി

തദ്ദേശീയമായി വികസിപ്പിച്ച മൂന്നാം തലമുറ മിസൈലാണിത്

നിലവിലെ കയറ്റുമതി ഇറക്കുമതി രീതികളിൽ മാറ്റം വന്ന സാഹചര്യത്തിലാണ് പുനരവലോകനത്തിനുള്ള ആവശ്യം മുന്നോട്ടു വച്ചതെന്ന് കേന്ദ്ര വാണിജൃകാരൃ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയും ഇന്ത്യയും സ്വതന്ത്ര വ്യാപാര കരാറുകൾ പുനപരിശോധ്രിക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെയാണ് നടപടി

ബി ഐ

ജാമ്യം ആവശ്യപ്പെട്ടും കസ്റ്റഡി ചോദ്യം ചെയ്തും മുൻ കേന്ദ്രമന്ത്രി പി

താഴ്വരയിലെ സ്ഥിതിസാധാരണ നിലയിലേക്ക് വന്നതിനാലാണ് ഗവൺമെന്റിന്റെ ഈ നടപടി

സൈനീക വിഭാഗങ്ങളോടും ആരോഗ്യ പ്രവർത്തകരോട്ടൂമാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്

ഷാങ്ഹായ് കോർപ്പറേഷന്റെ സൈനീക വൈദ്യശാസ്ത്ര സമ്മേളനം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

സൈനീക ആരോഗ്യ മേഖലകൾ ഇത് തിരിച്ചറിയുകയും ഇതിനെതിര ജാഗരൂകരായിരിക്കുകയും വേണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഷാങ്ഹായ് കോർപ്പറേഷൻ അംഗരാജ്യങ്ങളിലെ ജനങ്ങളുടെ സൌഖ്യത്തിനായി ഇന്ത്യ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി ഉറപ്പു നൽകി

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഒക്ടോബർ രണ്ടു മുതൽ ആദായ നികുതി ഒരു കേന്ദ്രീകൃത സംവിധാനത്തിൽ പരിശോധന നടത്തും

ഈ കൂട്ടികൾ കുടുംബത്തോടൊപ്പം താമസിക്കാൻ സജ്ജമായതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കൂടാതെ ഇരയായവർക്ക് ധനസഹായം നൽകാനും സുപ്രീംകോടതി നിർദ്ദേശം നൽകി

മുഖ്യമന്ത്രി പിണറായി വിജയനും ഹർജി നൽകുന്നുണ്ട്

എ മാർക്കും ഇ മെയിൽ വഴി ഹർജി അയയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഫ്ളാറ്റിൽ നിന്ന് താമസക്കാരെ ഒഴിപ്പിക്കുന്നത് ശരിയല്ലെന്നും തങ്ങളുടെ വാദം സുപ്രീംകോടതി കേട്ടില്ലെന്നും ഹർജ്ജിയിൽ ചൂണ്ടിക്കാട്ടും

ശബരിമലയിലും ഇന്ന് പ്രത്യേക പൂജകൾ ഉണ്ടായിരുന്നു അവിട്ടസദ്യയും ഒരുക്കിയിട്ടുണ്ട്

നർമ്മദ നദിയും പോഷകനദികളും അപകട രേഖയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്

ബുധനാഴ്ച ആക്ടിംഗ് സ്റ്റേറ്റ് ഹെഡായ ഗവർണർ ജൂലിയ പയറ്റിനെ കണ്ടാണു പാർലമെൻറ് പിരിച്ചുവിടാൻ ട്രൂഡോ ശിപാർശ ചെയ്തത്

ഇത്തവണ പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നു കടുത്ത വെല്ലുവിളിയാണു ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി നേരിടുന്നത്

ജലത്തിന്റെ സാന്നിധ്യം ്യൂചിപ്പിക്കുന്ന തരത്തിൽ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ജല ക്ണങ്ങളും നീരാവിയും കാണാനായി

ഇതാദ്യമായാണ് സൌരയൂധത്തിനു പുറത്ത് മറ്റൊരു നക്ഷത്ര സമൂഹത്തിൽ ജലസാന്നിധൃം കണ്ടെത്തുന്നത്

പുരസ്കാരത്തിനായി കായിക മന്ത്രാലയം ശുപാർശ ചെയ്ത ഒമ്പതു പേരും വനിതകളാണ് ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതയുടെ പേര് പദ്മ വിഭൂഷൺ പുരസ്കാരത്തിന് നിർദേശിച്ചെന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്